പ്രാബല്യത്തിൽ

സാമ്പത്തിക കമ്മി കുറയ്ക്കുന്നതിന് റിസർവ്വ് ന് ബാങ്കിന്റെ കരുതൽ ധനം വിനിയോഗിക്കില്ലെന്ന് ധനമന്ത്രി അരുൺ ജയ്റ്റ്ലി

സംസ്ഥാനത്ത് ഇന്ന് വനിതകൾ മതിൽ തീർക്കും

പോയവിർഷ്ടത്തെ നഷ്ടങ്ങളും സങ്കടങ്ങളും മറന്ന് ആഘോഷല്ഹ്രിയിൽ കേരളവും പുതുവർഷത്തെ സ്വാഗതം ചെയ്തു സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി സംഘടിപ്പിച്ച പ്പുതുവർഷാഘോഷ പരിപാടികളിൽ നിരവധിപ്പേർ ്പങ്കെടുത്തു വിവരങ്ങളുമായി ഗോപകുമാർ

തിരുവനന്തപുരത്ത് വിനോദസഞ്ചാരകേന്ദ്രങ്ങളായ കോവളത്തും വർക്കലയിലും വിദേശികളടക്കം നിരവധിപേർ ആഘോഷങ്ങളിൽ പങ്കെടുത്തു സംഗീതനിശയും ഡി

കോഴിക്കോട് കടപ്പുറത്തും പുതുവർഷം ആഘോഷിക്കാൻ ഒട്ടേറെപ്പേരെത്തി ഗ്രാമപ്രദേശങ്ങളിലടക്കം കനത്തസുരക്ഷാ സജ്ജീകരണങ്ങളാണ് പോലീസ് ഒരുക്കിയിരുന്നത്

തൊട്ടുപിന്നാലെ ഓസ് ട്രേലിയയിലും പുതുവർഷമെത്തി

ടി കൌൺസിലിന്റെ തീരുമാനം ഇന്നു മുതൽ പ്രാബലൃത്തിൽ വരും സിനിമ ടിക്കറ്റ് ടി വി ക്യാമറ കമ്പ്യൂട്ടർ വീൽചെയർ പവർ ബാങ്ക് തീർത്ഥാടനത്തിനുള്ള വിമാന ടിക്കറ്റ് വാക്കിംഗ് സ്റ്റിക്ക് തുടങ്ങിയവക്കാണ് ഇന്ന് മുതൽ വില കുറയുന്നത്

ഉച്ചയൂണിന് ശേഷം സഭ അല്പ നേരം നിർത്തിവെച്ചെങ്കിലും വീണ്ടും സമ്മേളിച്ചപ്പോഴും കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷം ബില്ല് സെലക്ട് കമ്മറ്റിയ്ക്ക് വിടണമെന്ന ആവശ്യം ആവർത്തിച്ചു ലോക്സഭ നാളെ വീണ്ടും ചേരും ധനകമ്മി പരിഹരിക്കാൻ ഗവൺമെന്റിന് റിസർവ് ബാങ്കിന്റെ കരുതൽ ധനം ആവശ്യമില്ലെന്ന് ധനമന്ത്രി അരുൺ ജയ്റ്റ്ലി ലോക്സഭയിൽ പറഞ്ഞു

ഒരു മാസത്തിനിടെ ഇത് രണ്ടാം തവണയാണ് രാജ്യത്ത് പാചകവാതക സിലിണ്ടറിന് വില കുറയ്ക്കുന്നത്

തെലങ്കാന സംസ്ഥാന രൂപീകരണത്തിന് ശേഷവും ഇരു സംസ്ഥാനങ്ങൾക്കുമായി ഹൈദരാണ്ടാദിൽ ഒരു ഹൈക്കോടതി മാത്രമാണ് ഇതുവരെ പ്രവർത്തിച്ചിരുന്നുത്

എ അധ്യക്ഷയും കോൺഗ്രസ് നേതാവുമായ സോണിയാഗാന്ധിക്കും പങ്കുണ്ടെന്ന് ജാർഖണ്ഡ് മുഖ്യമന്ത്രി രഘുബർദാസ് പറഞ്ഞു

ചോദ്യം ചെയ്യലിനിടെ ഇടനിലക്കാരനായ ക്രിസ്റ്റ്യൻ മിഷേൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുൻപാകെ സോണിയാഗാന്ധിയുടെ പേര് വെളിപ്പെടുത്തിയതിനെയും അദ്ദേഹം സൂചിപ്പിച്ചു

മരണസംഖ്യ ഇനിയും വർധിക്കുമെന്നാണ് അധികൃതർ നൽകുന്ന സൂചന

മരിച്ചവരുടെ ആശ്രിതർക്ക് ബിഹാർ ഗവൺമെന്റ് നാലു ലക്ഷം രൂപ വീതം സഹായധനം പ്രഖ്യാപിച്ചു

കാസർഗോഡു മന്ത്രി കെ

ശൈലജ ആദ്യകണ്ണിയും തിരുവനന്തപുരത്ത് സി

മതിലിന് അഭിമുഖമായി ഐക്യദാർഡ്യമറിയിച്ച് പുരുഷൻമാരും അണി നിരക്കും

എൽഎയും സി

എം നേതാവുമായ സൈമൺ ബ്രിട്ടോയുടെ നിര്യാണത്തിൽ ജന്മനാടിന്റെ ആദരാഞ്ജലി ഗവർണറും മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും അനുശോചനം രേഖപ്പെടുത്തി ഇന്ന് രാത്രിയോടെ കൊച്ചി വടുതലയിലുള്ള വീട്ടിലെത്തിക്കുന്ന ഭൌതികശരീരം വീട്ടിലും പിന്നീട് ടൌൺ ഹാളിലും പൊതുദർശനത്തിന് വയ്ക്കും നാളെ വൈകിട്ടോടെ ഭൌതികശരീരം സംസ്കരിക്കും

ശാസ്ത്ര സാങ്കേതിക വിദ്യ്യും വിദ്യാഭ്യാസവും സമൂഹ പുരോഗതിക്ക് ഉപയോഗപ്പെടുത്തണമെന്ന ശ്രീനാരായണഗുരുവിന്റെ കാഴ്ചപ്പാടും നവോത്ഥാന മൂല്യത്തിൽ അധിഷ്ഠിതമായ ഐക്യുവും കേരള പുനർനിർമാണത്തിന് മുതൽക്കൂട്ടാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പുതുവത്സരത്തോട് അനുബന്ധിച്ച് പ്രത്യേക പൂജയും സമൂഹപ്രാർത്ഥനയും മഹാസമാധി സന്നിധിയിൽ നടന്നു